ബ്രിട്ടീഷ് എം

ബ്ലോബ് ബ്ലാക്മാൻ അധിനിവേശ ക്ശമീരിൽ നിന്ന് പ്രാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണമെന്നും ബ്രിട്ടീഷ് എം

സാധൃമായതെന്തും ചെയ്യാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി

കാൻസർ ചികിത്സാ രംഗത്ത് കേരളവും മാലിദ്വീപും സഹകരണ കരാറിൽ ഒപ്പുവച്ചു

ഹൌഡി മോദി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പൊതുസമ്മേളനം ലോകത്തെ രണ്ടു വലിയ ജനാധിപത്യ രാജ്യങ്ങളിലെ തലവൻമാരുടെ സംഗമവേദി കൂടിയാകും

ആർ

മോദി ട്രംപ് സംയുക്ത റാലി ഇരുരൂജ്യങ്ങൾക്കുമിടയിലെ ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഉതകുമെന്ന് ് വെറ്റ് ഹൌസ് പ്രസ്സ് സെക്രട്ടറി സ്റ്റെഫാനി ഗ്രീഷെം അഭിപ്രായപ്പെട്ടു

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഹൌഡിമോദി പൊതുസമ്മേളനമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സവിശേഷ സൌഹൃദത്തെക്കുറിച്ചാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിപാടിയിൽ പരാമർശിക്കുകയെന്നും ശ്രീ മോദി ട്വിറ്റർ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു

അധിനിവേശ കശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലണ്ടനിൽ കശ്മീരി പണ്ഡിറ്റുകൾ സംഘടിപ്പിച്ച ബലിദാൻ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെ

കശ്മീർ വിഷയത്തിൽ ബ്ലാക്മാൻ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യൻ സ്ഥാനപതി രുചി ഘനശ്യാം നന്ദി അറിയിച്ചു

രാംനാഥ് കോവിന്ദ് കൂടിക്കാഴ്ച നടത്തും പ്രതിനിധ്രിതല ചർച്ചകൾക്ക് ശേഷം നിരവധി സഹകരണ കരാറുകളിൽ ഇരുപ്പ്രാജ്യങ്ങളും ഒപ്പുവയ്ക്കും

ദ്ദിദിന സന്ദർശന വേളയ്ിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സ്വീകരണച്ചടങ്ങിലും ഇന്ത്യ സ്പോഴ്വേനീയ ബിസിനസ് കൂട്ടായ്മയിലും രാഷ്ട്രപതി പങ്കെടുക്കും

രാംനാഥ് കോവിന്ദ്

ന്യൂസ് ഡെസ്ക് ആകാശവാ്ണി

ഗുജറാത്ത് ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ശ്രീ

സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുന്ന നമാമി ദേവി നർമ്മദേ മഹോത്സവിലും കെവഡിയയിൽ അദ്ദേഹം പങ്കെടുക്കും ഉയരം കൂട്ടിയശേഷം അണക്കെട്ടിൽ ആദ്യമായി ജലം സംഭരിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്

അശാന്തി എന്ന് പറയപ്പെടുന്ന സാഹചര്യം താഴ്വരയിൽ നിലനിൽക്കുന്നതിനാൽ ജമ്മു കാശ്മീർ ഹൈക്കോടതിയ്ക്ക് വിഷയം കൈകാര്യം ചെയ്യാമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

ബോബ്ഡെ എസ്

ശ്രീ ഫറൂഖ് അബ്ദുളളയെ അനധികൃത്തമായി തടങ്കലിലാക്കിയത് അദ്ദേഹത്തിന്റെ പൌരാവകാശങ്ങൾ ഹനീക്കുന്നതിന് തുല്യമാണെന്ന് ശ്രീ വൈകോ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്

എയിംസിൽ ചികിത്സയിലുളള ശ്രീ തരഗാമിക്ക് ഡോക്ടർമാർ അനുവദിച്ചാൽ സ്വദേശത്തേക്ക് മടങ്ങാമെന്ന് ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ബോബ് ഡേ എസ് എ നസീർ എന്നിവർ വ്യക്തമാക്കി പരമോന്നത കോടതി ഉത്തരവിനെ തുടർന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിന് ശ്രീ യൂസഫ് തരിഗാമിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്

ജെ

ജനറൽ സെക്രട്ടറി യുദ്ധ്വീർ സേത്തി ഈ നടപടിയുടെ ഗുണഫലം ജാതിമത ഭേദമന്യെ ജമ്മുകാശ്മീർ ജനതയ്ക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രത്യേക പദവി റദ്ദാക്കിയതിലൂടെ സംസ്ഥാന വികസനം കൂടുതൽ സുതാര്യമായെന്നും ശ്രീ

സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന നയത്തിലധിഷ്ഠിതമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ

യാതൊരു പ്രകോപനവുമില്ലാതെ ്ക്ഷിഞ്ഞ രാത്രി അതിർത്തി ജില്ലയായ പൂഞ്ചിലാണ് പാക് സൈന്യം ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്

ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ആക്രമണത്തിൽ സൈനികരിൽ ചിലർക്ക് നിസാരമായി പരിക്കേറ്റിട്ടുണ്ട്

സംസ്ഥാനഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെത്തുടർന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്

ഗോദാവരി നദിയിൽ സർവ്വീസ് നടത്തുന്ന ആന്ധ്രാപ്രദേശ് വിനോദസഞ്ചാര വകുപ്പിന്റെ ബോട്ടാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കജ് അദ്വാനിയെ ട്വിറ്ററിലൂടെ അഭിനന്ദനം അറിയിച്ചു പങ്കജിന്റെ നേട്ടത്തിൽ് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശുപാണി

സംസ്ഥാന ഗവൺമെന്റും ആർ

മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ കെ

ശൈലജ കടകംപള്ളി സുരേന്ദ്രൻ ആർ

രേഖ എ

കാൻസർ ചികിത്സയിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലുമുള്ള ആർ സി സി യുടെ വൈദഗ്ദ്ധ്യം ഉപയോഗപ്പെടുത്തി മാലിദ്ധീപിലെ കാൻസർ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി തിരുവന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു